ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാംഘട്ട വോട്ടെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ പൂർണ്ണം

ദൂരിതാശ്വാസ പ്രവർത്ത്നങ്ങൾ ഊർജ്ജിതം സ്ഥിതിഗതികൾ ്വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാ്ളെ ഒഡീഷയിൽ

ഐ

സൂപ്പർ കിംഗ്സ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടും

വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ തെരഞ്ഞെടുപ്പ് റാലികളിൽ ജനങ്ങളെ അഭിസംബോധ ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും റാലിളെ അഭിസംബോധന ചെയ്യും

ജെ

നേതാവ് മായാവതി ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗർ പ്രതാബ്ഗഢ് എന്നിവിടങ്ങളിൽ പ്രചാരണത്തിന് നേതൃത്വം നൽകും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന് നേതാക്കളാണ് ബി ജെ

ക്കായി പ്രചാരണം നടത്തുന്നത് ഉത്തർപ്രദേശിലെ ബദോഹി ജില്ലയിൽ നടന്ന വിജയ് സങ്കൽപ്പ് യാത്രയിൽ അദ്ദേഹം പങ്കെടുത്തു ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു

ഏറ്റവും കൂടുതൽ ദുരിതം സംഭവിച്ച പുരിയിലും സമീപ പ്രദേശങ്ങളിലും ഗവൺമെന്റിന്റെ സംസ്ഥാന കൂടി സഹകരണത്തോടെ ഇന്ത്യൻ നാവികസേന രക്ഷാ പുനരധിവാസ ശ്രമങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ് കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

രൺവിജയ് കടമത്ത് ഐരാവത്ത് എന്നിവയിൽ ഇതിനായി മൂന്ന് ഹെലികോപ്റ്ററുകളും പ്രവർത്തനം നടത്തിവരികയാണ്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഒഡീഷ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും മുഖ്യമന്ത്രി നവീൻ പട്നായിക്കുമായി ശ്രീ മോദി സംഭാഷണം നടത്തി കേന്ദ്രത്തിന്റെ തുടർന്നുള്ള എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു

കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഇന്നലെ രാവിലെതന്നെ പുനരാരംഭിച്ചു സീൽദാ ഹൌറ സെക്ഷനുകളിലെ ട്രെയിൻ സർവ്വീസും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്

അതേസമയം ബംഗ്ലാദ്ടേശ്ട് തീരപ്രദേശത്തെ ഡസൻ കണക്കിന് ഗ്രാമങ്ങൾ വെള്ളത്തിന്റിട്ടിയിലാണ്

നേതാവ് ഗുലാം മൊഹമ്മദ് മിറന്റെ കൊലപാതകത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു തീവ്രവാദികളുടെ വെടിയേറ്റാണ് മൊഹമ്മദ് മിർ കൊല്ലപ്പെട്ടത് ജമ്മുകാശ്മീരിൽ പാർട്ടിയെ ശാക്തീകരിക്കുന്നതിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്നെന്നും സ്മരിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു അക്രമങ്ങൾക്ക് രാജൃത്ത് ഒരു സ്ഥാനവുമില്ലെന്നും ഗുലാം മൊഹമ്മദിന്റെ കുടുംബാംഗങ്ങളുടെ ദുഖത്തിൽ പങ്കുചേരുന്നതായും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

നേതാവ് ഗുലാം മുഹമ്മദ് മിറിന്റെ കൊലപാതകത്തിൽ ബി ജെ പി ദേശീയ പ്രസിഡന്റ് ആമിത്ഷാ അതീവ ദുഖം രേഖപ്പെടുത്തി

കാശ്മീരിലെ തീവ്രവാദ അക്രമ പ്രവർത്തനങ്ങൾ പാർട്ടി പ്രവർത്തകരെ തളർത്തുകയില്ലെന്നും ഷാ പറഞ്ഞു

പ്രിഫ്റ്റ്ൾടിക്കറ്റിനൊപ്പം ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും ഹാൾടിക്കറ്റിലുള്ള അതേ ഫോട്ടോയും കരുതണം പാലക്കാട് സെന്റ് മേരീസ് പോളിടെക്നിക്കിലെ പരീക്ഷാകേന്ദ്രവും ആലപ്പുഴ പള്ളിപ്പുറം സി

എഫ് പരീക്ഷാകേന്ദ്രവും മാറ്റിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികൾ പുതിയ അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യണം

ഇന്നലെ നടന്ന ഈ പരീക്ഷണം ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് അൻ ന്റെ സാന്നിദ്ധൃത്തിലാണ് നടത്തിയത് പ്രതിരോധ യൂണിറ്റുകളുടെ പ്രവർത്തന സജ്ജത വിലയിരുത്തുന്നതിനായിരുന്നു പരീക്ഷണ വിക്ഷേപണം നടത്തിയത് ഏതാനും വർഷങ്ങളായി ഹ്രസ്വ ദൂര മിസൈൽ വിക്ഷേപണം പ്യോങ് ങ്യാംഗ് നടത്താറുണ്ടായി രുന്നില്ല വിക്ഷേപണത്തോട് പ്രതികരിച്ചുകൊണ്ട് യു

പ്രതിപക്ഷ നേതാവ് ജുവാൻ ഗുഎയ്ഡോയുടെ അനുയായികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിവന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് മഡ്റോയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ യു

ഇന്നലെ പ്രതിരോധ മന്ത്രിയോടൊപ്പം ടെലിവിഷനിലൂടെ നടത്തിയ അഭിസംബോധനയിലാണ് സൈന്യത്തോട് തയ്യാറായി നിൽക്കാൻ മഡ്റോ ആവശ്യപ്പെട്ടത് മഡ്റോയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയുടെ പ്രഖ്യാപനത്തോടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതിഷേധത്തിന് കൂടുതൽ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം അതലസ്ഥാനമായ കരാകസിൽ ഹെലികോപ്റ്റർ തകർന്നുവീണ് ഏഴ് സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു

എല്ലിൽ അവസാന ലീഗ് മത്സരങ്ങളിൽ ചെന്നൈ സൂപ്പർ കിംഗ്സ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടും വൈകിട്ട് നാല് മണിക്ക് ചെന്നൈയിലാണ് മത്സരം രാത്രി എട്ടിന് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് നൈഡേഴ്സിനെ നേരിടും ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദ്രാബാദിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചു

പുരുഷ വിഭാഗം ടോപ്പ് സ്വീഡായ ഘോഷാൽ ഹോങ്കോങ്ങിന്റെ ലീയോ ഔ ചുംങുമായി ഏറ്റുമുട്ടും നിലവിലുള്ള ചാമ്പൃനായ ജോഷ്നാ ചിന്നപ്പ ഹോങ്കോങ്ങി മറ്റൊരു താരം ആനി ഔ വുമായി ഏറ്റുമുട്ടും

ആക്രമണത്തിൽ ഇസ്രയേൽ സേന ശക്തമായി തിരിച്ചടിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഗു സുരക്ഷാ മേധാവികളുമായി ആശയവിനിമയം നടത്തി